ഇരട്ടിയായി വർദ്ധിച്ചുവെന്ന് ലോകാരോഗൃ സംഘടന

സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമുന്ത്രിയ്ുടെ നേതൃത്വത്തിൽ ഇന്ന് രാത്രി അടിയന്തര്യ യ്യോഗം

രോഗസ്ഥിരീകരണ നിരക്കിൽ വീണ്ടും വർദ്ധന

വോട്ടെടുപ്പ് പൂർത്തിയായി

ഐപിഎല്ലിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഹൈദരബാദ് സൺറൈസേഴ്സ് പോരാട്ടം

രോഗബാധയും മരണങ്ങളും ആശങ്കാജനകമായ നിരക്കിൽ വർദ്ധിച്ച് കൊണ്ടിരിക്കുകയാണെന്ന് ലോകാരോഗൃ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയാസിസ് പ്രത്യേക മന്ത്രിതല യോഗത്തിൽ പറഞ്ഞു മുമ്പ് കോവിഡ് പകരുന്നത് പ്രതിരോധിച്ച ചില രാജൃങ്ങളിൽ ഇപ്പോൾ അണുബാധ കുത്തനെ വർദ്ധിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു

വാക്സിനേഷൻ തുല്യത ഒരു വെല്ലുവിളിയായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും വേഗത്തിൽ വിതരണം ചെയ്യുന്നതിനുള്ള വാക്സിനുകളുടെ ഗവേഷണത്തിലും വികസനത്തിലും എല്ലാവരും സഹകരിക്കണമെന്നും അദ്ദേഹം ആഗോള സമൂഹത്തോട് അഭ്യർത്ഥിച്ചു

വാക്സിനുകൾ വിതരണം ചെയ്യുന്നതിലുള്ള ആഗോള സഹകരണത്തിന്റെ അഭാവം ദുർബല രാജ്യങ്ങളെ ബാധിക്കുമെന്നും ശ്രീ

കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ ലോകത്ത് മുൻനിരയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

കൂടുതൽ വിവരങ്ങളുമായി പ്രവീണ

സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരിലൂടെ മറ് കോവിഡ് വ്യാപിക്കാതിരിക്കാനുള്ള നടഷ്ട്രീകളും സ്വീകരിച്ചിട്ടുണ്ട്

മഹാരാഷ്ട്രയിലും കേരളത്തിലും ബീഹാറിലും ശക്തമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്

അവശ്യ സർവ്വീസുകളെ മാത്രം നിയന്ത്രണങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഗുജറാത്തിലെ സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാ ക്കാൻ ആരോഗ്യ വിദഗ്ദ്ധരുടെ പ്രത്യേക സംഘത്തെ കേന്ദ്രം നിയോഗിച്ചിട്ടുണ്ട്

ഇന്ന് രാത്രി എട്ട് മണിക്കായിരിക്കും യോഗം വിവിധ മന്ത്രാലയങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും

മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഡൽഹി ഛത്തീസ്ഗഡ് കർണ്ണാടക മധ്യപ്രദേശ് കേരളം ഗുജറാത്ത് തമിഴ്നാട് രാജസ്ഥാൻ എന്നിവയാണ് ഈ സംസ്ഥാനങ്ങൾ ഏറ്റവുമധികം പ്രതിദിന കോവിഡ് ബാധ മഹാരാഷ്ട്രയിലാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

കോവിഡ് കൃ ആശുപത്രികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ഓക്സ്ട്രിൻ വിതരണ സൌകര്യമുള്ള കിടക്കകൾ സജ്ജമാക്കാനുർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി

ഏറ്റവും കൂടുതൽ രോഗബാധ സ്ഥിരീകരിച്ചത് എറണാകുളം ജില്ലയിലാണ്

കോവിഡിനെതിരായ പോരാട്ടം രാഷ്ട്രീയത്തിന് അതീതമാണെന്നും ദേശീയ വെല്ലുവിളിയാണെന്നും അവർ പറഞ്ഞു

കോവിഡ് വ്യാപനത്തിനെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച പ്രതിരോധ നടപടികളെ തുടർന്നാണ് തീരുമാനം ഇക്കാരൃം സൂചിപ്പിച്ച് മേഖലാ ജനറൽ മാനേജർമാർക്ക് കേന്ദ്ര റെയിൽവെ മന്ത്രാലയം കത്തയച്ചു അടുത്ത ആറ് മാസത്തേക്കാണ് പുതിയ തീരുമാനം

തുടർ ചടങ്ങുകൾ പ്രതീകാത്മകമായി നടത്താൻ സ്വാമി അവ്ധേശ് ആനന്ദ് ഗിരിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു ഇത് കോവിഡിനെതിരായ പോരാട്ടത്തിന് ശക്തി പകരുമെന്നും അദ്ദേഹം പറഞ്ഞു

ഇനി മൂന്ന് ഘട്ടങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്

ഒഡീഷയിലെ പിപ്പ്ലീ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ്സ് സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് മാറ്റിവച്ചിരുന്നു

ചെന്നൈയിലെ എം

ടോസ് നേടിയ മുംബൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിംഗ്സ് പഞ്ചാബ് കിംങ്സിനെ പരാജയപ്പെടുത്തിയിരുന്നു

സാമൂഹിക ശാക്തീകരണത്തിന്റായുള്ള ചന്ദ്രശേഖറിന്റെ പ്രതിബദ്ധത എന്നും ബഹുമാ്ജീക്ക്പ്പെടുമെന്ന് അദ്ദേഹം അനുസ്മരിച്ചു

ഇതോടെ കാസ്ട്രോ കുടുംബത്തിന്റെ പാർട്ടിയിലെ ആറ് പതിറ്റാണ്ട് നീണ്ട ആധിപത്യത്തിനാണ് സമാപനമാകുന്നത് ക്യൂബയുടെ പ്രസിഡന്റ് മിഗേൽ ഡ്യൂയസ് കനേലിന് പാർട്ടി സെക്രട്ടറി സ്ഥാനം അദ്ദേഹം കൈമാറി ഇന്നലെ ആരംഭിച്ച നാല് ദിവസത്തെ പാർട്ടി കോൺഗ്രസിലാണ് അധികാര കൈമാറ്റം നടന്നത്

എഫ് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ നിരന്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് അങ്ങേയറ്റം പരിഹാസ്യമാണെന്ന് സി

ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള എ

കോവിഡിനെതിരായ കേരളത്തിന്റെ പോരാട്ടത്തിന് കരുത്തുറ്റ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും അപഹസിക്കാനുമുള്ള നീക്കം ജനങ്ങൾ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു